ആകാശവാണി നിലയങ്ങൾ സന്ദേശം പ്രക്ഷേപണം ചെയ്യും ട്വിറ്ററിൽ പ്രധാനമന്ത്രി തന്നെയാണ് ലഘുസന്ദേശം നൽകുന്ന കാര്യം അറിയിച്ചത് കൊവിഡ് സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നേരത്തെ രണ്ട് തവണ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തിരുന്നു ദേദ ലോകത്തെ മുഴുവൻ പ്രവാസി മലയാളികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്രഗവൺമെന്റ് ഇടപെടണമെന്ന് പ്രധാനമന്ത്രിയുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിൽ ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു രോഗം സംശയിക്കുന്നവർക്ക് ഇന്ത്യൻ എംബസികളുടെ സഹായത്തോടെ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു വിദേശത്ത് ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് വ്യക്തിഗത പ്രതിരോധ സാമഗ്രികളും സംവിധാനങ്ങളും അതാത് രാജ്യങ്ങളുടെ സഹകരണത്തോടെ കേന്ദ്രഗവൺമെന്റ് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊറോണ അല്ലാത്ത കാരണങ്ങളാൽ മരിക്കുന്നവരുടെ ശരീരങ്ങൾ നാട്ടിലെത്തിക്കാൻ സംവിധാനം ഏർപ്പെടുത്താൻ എംബസികൾക്ക് നിർദ്ദേശം നൽകണം അന്തർസംസ്ഥാന ചരക്കുനീക്കം ഒരു തരത്തിലും തടയില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു കോവിഡ് പ്രത്യേക ആശുപത്രികൾ തുടങ്ങാൻ കൂടുതൽ തുക ആവശ്യമായതിനാൽ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് തുകയെടുക്കാൻ അനുവദിക്കണം സംസ്ഥാനത്തിന്റെ വായ്പാപരിധി അഞ്ച് ശതമാനമായി ഉയർത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് കോവിഡ് ഹോട്ട്സ്പോട്ടുകളായി തരംതിരിച്ച ഏഴ് ജില്ലകളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു രാജ്യാന്തര വിമാനയാത്രാ വിലക്കിൽ വിദേശ മലയാളികളുടെ ആശങ്കയകറ്റാൻ കേന്ദ്രം ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറിനും കത്തയച്ചു ദേശ ലോകത്താകെ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ജാഗ്രത ഇനിയും വർദ്ധിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു

സംസ്ഥാനത്തേക്ക് ചരക്കുലോറി നീക്കം സജീവമായി നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തി എന്നാൽ ശരാശരിയ്ക്ക് താഴെയാണ് വാഹനങ്ങളുടെ വരവ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് ആയിരം രൂപ വീതം തൊഴിലാളികൾക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് രോഗികൾ കുറഞ്ഞെന്ന പേരിൽ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നഴ്സുമാരെ പിരിച്ചുവിട്ടെന്ന പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഗവൺമെന്റ് ഇതനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാസർകോട്ടെ ചില മാധ്യമപ്രവർത്തകർക്ക് രോഗസാധ്യത പറയുന്നുണ്ടെന്നും റിപ്പോർട്ടിംഗിന് പോകുന്നവർ ശ്രദ്ധ പുലർത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു

കാസർഗോഡ് ജില്ലയിൽ എട്ടു പേർക്കും ഇടുക്കിയിൽ അഞ്ചു പേർക്കുമാണ് കൊവിഡ് ബാധിച്ചത് കൊല്ലത്ത് രണ്ടു പേർക്കും തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് ഇവരിൽ ഒൻപതുപേർ വിദേശത്ത് നിന്നും രണ്ടു പേർ നിസാമുദ്ദീനിൽ നിന്നും ഒരാൾ ഗുജറാത്തിൽ നിന്നും വന്നവരാണ് ഒൻപതു പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചതെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസ മ്മേളനത്തിൽ അറിയിച്ചു

ഇതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം എഴായി

് കോട്ടയം ജില്ലയിൽ കൊവിഡിന് ഒരാൾ മാത്രമാണ് ചികിത്സയിൽ കഴിയുന്നത് മൂന്ന് പേർ ആശുപത്രി നിരീക്ഷണത്തിലുണ്ട്

തൃശൂർ ജില്ലയിലും ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു

രോഗം സ്ഥിരീകരിച്ചവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് വിവരം

കാസർകോടു നിന്നും ആകാശവാണി പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്

മൂന്ന് പേർക്കാണ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്

മലപ്പുറത്തുനിന്ന് ഞങ്ങളുടെ പ്രതിനിധി എം

രാള കേരള ഗവൺമെന്റിനെയും നാട്ടുകാരെയും മോശക്കാരാക്കി ചിത്രീകരിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന് മഞ്ചേരിയിൽ ഉത്തർപ്രദേശ് സ്വദേശി അറസ്റ്റിലായി ബനഫ സുൽത്താൻപുർ സ്വദേശി മുഹമ്മദ് ഖുദ്ധൂസിനെയാണ് പൊലീസ് അറസ്റ്റ് ചെയ്തത് ദേദ പാലക്കാട് ജില്ലയിൽ ആറുപേർക്ക് രോഗം സ്ഥിരീകരിച്ചു

കൊച്ചിയിൽ നിന്നും ആകാശവാണി ലേഖകൻ എൻ സി ജയചന്ദ്രൻ

രുദ ലോക്ഡൌൺ കാലത്തെ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ലംഘിച്ചാൽ ഉണ്ടാകാവുന്ന ശിക്ഷാനടപടികളെപ്പറ്റി വ്യാപകമായ പ്രചാരണം നൽകണമെന്ന് ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയെടുക്കണമെന്നും ആഭ്യന്തര സെക്രട്ടറി അജയ്കുമാർഭല്ല കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്

കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വിയാണ് ഡൽഹിയിൽ ഇക്കാര്യമറിയിച്ചത്

ഇപ്പോഴത്തെ നിബന്ധനകളും വ്യവസ്ഥകളും പാക്കേജ് നിരക്കുകളും അനുസരിച്ചാണ് പദ്ധതി തുടരുകയെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

ദേദ കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയുംകേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഉഷ്ണ തരംഗ സാധ്യതമുന്നറിയിപ്പ് നൽകി

പൊതുജനങ്ങൾകർശനമായും വീടുകളിൽ തന്നെ കഴിയണമെന്നും ചൂട് കൂടിയ സമയങ്ങളിൽ കൂടുതൽ നേരം പുറത്തു നിൽക്കരുതെന്നും ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു